നഷ്ടപ്പെട്ടവർക്ക് സൌജന്യ പ്രിന്റൌട്ട് നൽകും റേഷൻ കാർഡ് നഷ്ടപ്പെട്ടവ്ർക്ക് സൌജന്യമായി പുതിയ റേഷൻ കാർഡും അനുവദിക്കും

തുടക്കമായി മഴമാറിയെങ്കിലും ഇടുക്കിയിൽ ദുരിതം തുടരുന്നു

ഇന്ന് ബലിപെരുന്നാൾ

വിജയത്തിനരികെ

നടപടികൾക്ക് പ്രളയ ദുരിതാശ്ചാസം വിലയിരുത്താൻ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്താണ് സർവ്വക്ഷിയോഗം ചേർന്നത് കൂടുതൽ വിവരങ്ങളുമായി അനിൽകുമാർ

വനിതാ സംഘടനകളുടെ അടയാളങ്ങളോടെ ക്യാമ്പിലെത്തുന്നത് ഒഴിവാക്കാൻ എല്ലാ പാർട്ടികളും നിർദേശം നൽകണം ജനങ്ങൾ ഒഴിഞ്ഞുപോയ വീടുകളിൽ കവർച്ചാ ശ്രമമുണ്ടാകുന്നത് തടയാൻ പട്രോളിംഗ് ശക്തമാക്കും

ജനങ്ങൾക്ക് ഇൻഷുറൻസ് ആനുകൂലൃങ്ങൾ ലഭ്യമാകുന്നതിനുള്ള സാങ്കേതിക തടസങ്ങൾ പരിഹരിക്കുമെന്ന് ഇൻഷുറൻസ് അറിയിച്ചിട്ടുണ്ട് കമ്പനികൾ പഞ്ചായത്തുതലത്തിലുള്ള പിതിവുകൾ പാടില്ലെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ്നിധിയിലേക്ക് സഹായം നൽകുന്നതാകും ഉചിതമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ട്ടടടടടട മുഖ്യമന്ത്രി ചീഫ്സെക്രട്ടറി പ്രളയത്തെത്തുടർന്ന് സംസ്ഥാനത്തെ അടിയന്തരമായി പുനർനിർമിക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ആലോചിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ മുൻ ചീഫ് സെക്രട്ടറിമാരുടെ യോഗം ചേർന്നു സ്വകാര്യ മേഖലയുടെ കൂടി സഹകരണത്തോടെ പുനർനിർമാണ പ്രവർത്തനങ്ങൾ എങ്ങനെ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുമെന്നും ആവശൃമായ ധനം എങ്ങനെ സമാഹരിക്കാമെന്നും യോഗം ചർച്ച ചെയ്തു

എബ്രഹാമിനെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി

ഓരോ വ്യക്തിക്കും അഞ്ച് കിലോ വീതം ലഭിക്കത്തക്കവിധത്തിലാണ് അരി അനുവദിച്ചതെന്ന് കേന്ദ്രമന്ത്രി വാർത്താ ലേഖകരോട് പറഞ്ഞു

ശുചിത്വമിഷൻ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിന്ന് നേതൃത്വത്തിൽ ചെങ്ങന്നൂരിൽ എല്ലാ പഞ്ചായത്തുകളിലും ശുചീകരണ നഗരങ്ങളിലും പ്രവർത്തനങ്ങൾ നടന്ന് വരികയാണ് എന്നാൽ കുട്ടനാട് ഇപ്പോഴും വെള്ളത്തിലാണ് അമ്പലപ്പുഴ ചേർത്തല താലൂക്ക്കളിലും തിരുവല്ല ചങ്ങനാശ്ശേരി പ്രദേശങ്ങളിലും ഉള്ള ദുരിതാശാസ കൃാമ്പുകളിലാണ് കുട്ടനാട്ടുകാർ ഉള്ളത്

അപ്പർകുട്ടനാട് മേഖലയിലാണ് ബുദ്ധിമുട്ടു്കൾ ഏറെയുള്ളത്

ബാങ്കുകളും പോസ്റ്റ് ഓഫീസുകളും ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ ഇതിന് സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്

പുതിയ കാർഡ് ലഭിക്കുന്നത് വരെ റേഷൻ കാർഡിന്റെ നമ്പർ പറഞ്ഞാൽ റേഷൻ ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു അതോടൊപ്പം മാവേലി സ്റ്റോറിൽ കാർഡ് നഷ്ടപ്പെട്ടവർ അവരുടെ മൊബൈൽ ഫോൺ നമ്പർ നൽകിയാൽ മതിയാകുമെന്ന് അദ്ദേഹം വൃക്തമാക്കി

പള്ളികളിലും ഇൌദീഗ്രാഹുകളിലും രാവിലെ പെരുന്നാൾ നമസ്കാരവും പ്രഭാഷണങ്ങളും നടന്നു

തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് പാളയം ജുമാ മസ്ജിദ് ഇമാം വി

ടടടടട ട്ടട്ട ഗതാഗതം സംസ്ഥാനത്ത് ട്രെയിൻ ഗതാഗതം പുനസ്ഥാപിച്ചെങ്കിലും സാധാരണ നിലയിലാകാൻ ഒരാഴ്ചയോളം വേണ്ടിവരുമെന്ന് റെയിൽവേ തൃശ്ശൂർ ഗുരുവായൂർ പാത ഇന്നലെ വൈകിട്ട് ഗതാഗതയോഗ്യമാക്കി

ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ വനിതാ ഗുസ്തി താരമെന്ന നേട്ടം സ്വന്തമാക്കിയാണ് ദിവ്യ കക്രാന്റെ മുന്നേറ്റം